ൾ ൽ ൾ സംസ്ഥാനത്ത് അഞ്ചിടത്തെ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ആർക്കൊപ്പമെന്ന് ഇന്നറിയാം രാവിലെ എട്ടിന് വോട്ടെണ്ണൽ തുടങ്ങും അരമണിക്കൂറിനകം തന്നെ ആദ്യ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും ഉച്ചയോടെ ഫലം പുറത്തുവരും മഞ്ചേശ്വരത്ത് പൈവെളികെ ഗവൺമെന്റ് ഹയർസെക്കൻററി സ്കൂളിലും എറണാകൂളത്ത് മഹാരാജാസ് കോളജിലും അരൂരിൽ ചേർത്തല പള്ളിപ്പുറം എൻഎസ്എസ് കോളജിലുമാണ് വോട്ടെണ്ണൽ കോന്നിയിൽ എലിയറക്കൽ അമൃത വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിലും വട്ടിയൂർക്കാവിൽ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കന്ററിയിലുമാണ് വോട്ടെണ്ണൽ തപാൽ വോട്ടുകൾ എണ്ണിയ ശേഷം മറ്റ് വോട്ടുകൾ എണ്ണിത്തുട ങ്ങും ഓരോ മണ്ഡലത്തിലേയും അഞ്ച് ബൂത്തുകളിലെ വിവിപാറ്റ് സ്സിപ്പുകളും നറുക്കെടുത്ത് എണ്ണും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും മഹാരാഷ്ട്ര യിലും ഇന്നുതന്നെയാണ് വോട്ടെണ്ണൽ

രണ്ട് ലോക്സഭാ സീറ്റിലെ ഉപ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്നുണ്ടാകും

രണ്ട് കമ്പനികളും ലയിപ്പിക്കും

ഇതിനായി മുപ്പതിനായിരം കോടിയോളം രൂപ മാറ്റിവെക്കും നാല് കൊല്ലം കൊണ്ടായിരിക്കും പുനരുജ്ജീവന പദ്ധതി പൂർണമായി നടപ്പാക്കുകയെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദ് ഡൽഹിയിൽ അറിയി ച്ചു ബിഎസ്എൻഎലോ എംടിഎൻഎലോ അടച്ചുപൂട്ടില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇരു കമ്പനികളും പ്രതിസന്ധി മറികടക്കുമെന്ന് രവിശങ്കർ പ്രസാദ് വിശ്വാസം പ്രകടിപ്പിച്ചു പെട്രോളിയം മേഖലയിൽ ഇല്ലാത്ത കമ്പനികൾക്കും പെട്രോൾ പമ്പുകൾ തുടങ്ങാൻ കേന്ദ്രഗവൺമെന്റ് അനുമതി നൽകി

സ്വകാര്യ മേഖലയുടെ കടന്നുവരവോടെ ഈ രംഗത്ത് ഉപഭോക്താ ക്കൾക്ക് കൂടുതൽ സേവനങ്ങളും സൌകര്യങ്ങളും ലഭ്യമായേക്കുമെ ന്നാണ് വിലയിരുത്തൽ

കേരളത്തിന്റെ വികസനത്തിന് പ്രവാസി നിക്ഷേപം പ്രയോജന പ്പെടുത്താൻ ഡയസ്പോര ബോണ്ട് ഇറക്കുന്ന കാര്യം പരിഗണിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സുര ക്ഷിതമായും ആകർഷകമായും നിക്ഷേപം നടത്താവുന്ന പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കി വരികയാണ് തിരുവനന്തപുരം കാസർകോട് അതിവേഗ റെയിൽപാതയടക്കം പദ്ധതികൾ ഇതിന് പ്രയോജനപ്പെടു ത്താം കണ്ണൂർ വിമാനത്താവളത്തിന്റെ അനുബന്ധ വികസനത്തിനും നിര വധി പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്ക്കരിച്ചിട്ടുണ്ട്

കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ ചുറ്റുവട്ടത്തിന്റേയും വിശദാംശങ്ങൾ പരിശോധിക്കാനും പ്രവർത്തനങ്ങൾ ആസുത്രണം ചെയ്യാനും ഭൂപടങ്ങൾ അനിവാര്യമാണെന്ന് വീഡിയോ കോൺഫ റൻസിങ്ങിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗി ച്ചാണ് മാപ്പ് തയാറാക്കുന്നത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യു മെന്ന് മന്ത്രിമാരായ വി

സുനിൽകുമാറും കെ കൃഷ്ണൻകുട്ടിയും തിരുവനന്തപുരത്ത് അറിയിച്ചു കൃഷിവകുപ്പും മറ്റ് വകുപ്പുകളും ചേർന്നാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് കരാർ ഒപ്പിടുന്നതിന് മുമ്പ് കേന്ദ്രം പാർല മെന്റിലോ സംസ്ഥാനങ്ങളുമായോ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് വി

ഈ വർഷത്തെ ശബരിമല മണ്ഡല മക്രവിളക്ക് ഉത്സവകാ ലത്ത് തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തേണ്ട് സൌകര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം നവംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് ചേരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പുറമെ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും

ബിടെക് മാർക്ക്ദാന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാ ഗാന്ധി സർവ്വകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും വൈസ് ചാൻസലറുടെ അഭാവത്തിൽ പ്രൊ വൈസ് ചാൻസ ലരുടെ അധ്യക്ഷതയിലാണ് യോഗം ബിടെക് വിദ്യാർത്ഥിനിക്ക് അധിക മാർക്ക് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന ആരോപണം ചർച്ച ചെയ്യാനാണ് അടിയന്തര യോഗം മൈസൂരു തലശ്ശേരി കുടക് മൈസൂരു റെയിൽപാതകളുടെ നിർമ്മാണത്തിന് മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനു മതി വാങ്ങിയിരിക്കണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു കുടക് വൈൽഡ്ലൈഫ് സൊസൈറ്റി നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധി

കാസർകോട് മുതൽ കോട്ടയം വരെ എട്ട് ജില്ലകളിൽ ഇന്ന് ശക്ത മായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ക്ഷേന്ദ്രം അറിയിച്ചു

കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് തുറന്ന ദുരിതാശ്ചാസ ക്യാമ്പു കളിൽ ആറെണ്ണം ഇപ്പോഴും തുടരുകയാണ്

മീൻപിടിത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും ആദ്യ മത്സ രത്തിൽ കൊൽക്കത്തയെ കീഴടക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങുന്നത് ജവഹർലാൽ നെഹ്രു സ്റ്റേഡി യത്തിൽ രാത്രി ഏഴിനാണ് കിക്കോഫ് മഡ്ഗാവിൽ ഇന്നലെ മുൻ ചാമ്പൃൻമാരായ ചെന്നൈ എഫ്സിയെ ഗോവ എഫ്സി മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചു പാറ്റ്നയിൽ ദേശീയ സബ്ജൂനിയർ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കേരളം ഫൈനലിലെത്തി ഇന്നലെ സെമിയിൽ നിലവിൽ ചാമ്പ്യൻമാരായ തമിഴ്നാടിനെ അട്ടിമ റിച്ചാണ് കേരളം കലാശപ്പോരാട്ടത്തിന് അർഹത നേടിയത്

കണ്ണൂർ മട്ടന്നൂരിൽ അന്തർദ്ദേശീയ നിലവാരത്തോടെ നീന്തൽക്കുളം നിർമ്മിക്കാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകി

കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കും

കേരളം ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമെന്ന ലക്ഷ്യത്തിനടു ത്തെത്തിയതായി മന്ത്രി എ

മൂന്ന് വർഷം കൊണ്ട് വീടില്ലാത്ത മൂന്ന് ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ നടപടികൾ പൂർത്തീകരിച്ചതായും അദ്ദേഹം കൊല്ലം മുണ്ടക്കൽ കച്ചി ക്കടവിൽ പറഞ്ഞു

വടകര ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാ ണം മന്ത്രി കെ

ശൈലജ രാവിലെ ഉദ്ഘാടനം ചെയ്യും ബ്ലഡ് ബാങ്കും അവർ നാടിന് സമർപ്പിക്കും ഉച്ചക്ക് മൂടാടി കേളപ്പജി സ്മാരക പ്രാഥമികാരോഗൃ കേന്ദ്രത്തെ കുടുംബാരോഗൃ കേന്ദ്രമാക്കി ഉയർത്തുന്ന പ്രഖ്യാപനവും മന്ത്രി നടത്തും തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴസ് ആശുപത്രിയുടെ കവാടവും ചുറ്റുമതിലും മന്ത്രി ഉദ്ഘാടനം ചെയ്യും

അന്വേഷണ പുരോഗതി വിലയി രുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനിടെ കൂടത്തായി കൊലപാതക കേസിലെ പ്രധാനപ്രതി ജോളി ഉപയോഗിച്ചിരുന്ന കാറിൽ നിന്ന് പൊട്ടാസൃം സയനെയ്ഡ് എന്ന് സംശയിക്കുന്ന വെളുത്ത പൊടിയും മറ്റ് ചില സാധനങ്ങളും കണ്ടെടുത്തു സിലി കൊലപാതക കേസിൽ ജോളിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും മാറാട് കലാപത്തിൽ കുഞ്ഞിക്കോയ എന്നയാൾ കൊല്ലപ്പെട്ട കേസിൽ മൂന്ന് പ്രതികളുടെ ജീവപരൃന്തം തടവുശിക്ഷ ഹൈക്കോ ടതി ശരിവെച്ചു മാറാട് പ്രത്യേക കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി

തൊഴിയൂർ സുനിൽ വധക്കേസിൽ നാല് ദിവസത്തെ പൊലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ സൂനിലിന്റെ വീട്ടിലെത്തിച്ച് തെളിവെ ടുപ്പ് നടത്തി ജംഇയ്യത്തുൽ ഇസാനിയ പ്രവർത്തകരായ കൊളത്തൂർ സ്വദേശി ഉസ്മാൻ തൃശൂർ അഞ്ചങ്ങാടി സ്വദേശി യൂസഫലി തൃശൂ രിലെ മൊയിനുദ്ദീൻ ചെറുതുരുത്തിയിലെ സുലൈമാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വൈകീട്ട് കോഴിക്കോട് കടപ്പുറത്ത് പതാക ഉയരും

കേരള എൻ

അസോസിയേഷൻ നാൽപ്പത്തി അഞ്ചാം സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂരിൽ തുടങ്ങും വൈകീട്ട് സ്റ്റേഡിയം കോർണറിൽ പൊതുസമ്മേളനം കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും